വെടിവയ്പ്പിൽ ഒരു കുട്ടി മരിക്കാനിടയായ സംഭവത്തിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനെ അതൃപ്തി അറിയിച്ച് ഇന്ത്യ

അംഗീകാരം

യാതൊരു പ്രകോപനവും കൂടാതെയുളള പാക്കിസ്ഥാന്റെ വെടിഉതിർക്കലിനെ ഇന്ത്യ ശക്തമായി അപലപിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇന്ത്യ ഇസ്ലലാമാബാദിനോട് ആവശ്യപ്പെട്ടു മനുഷ്യത്തത്തിനും സൈനിക നിയമ നടപടിക്രമങ്ങൾക്കും എതിരായുളള പ്രവർത്തിയാണ് പാക്കിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും ഇന്തൃയിലെ പാക്കിസ്ഥാൻ ഹൈക്കമ്മീഷനെ അറിയിച്ചു

അനിൽ യാദവ് എന്നയാൾക്കെതിരെ അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എസ് കലയാണ് ശിക്ഷ വിധിച്ചത്

തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ഇരയും ബന്ധുവും ചേർന്നാണ് ചീഫ് ജഡ്സ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് കത്തയച്ചത് കത്ത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സ്വമേധയാ പരാതിയായി സ്വീകരിക്കുകയായിരുന്നു കത്ത് നേരത്തെ തന്റെ മുന്നിൽഎത്താതിരുന്നത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് സെക്രട്ടറി ജനറലിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്

കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി എം എൽ എ കുൽദ്വീപ് സിങ്ങെ സെങ്കാറിനേയും മറ്റ് പത്ത് പേരേയും പ്രതിചേർത്ത് സി ബി ഐ കേസ് രജിസ്ട്രർ ചെയ്തിട്ടുണ്ട്

ജെ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

എക്സ് മീഡിയ അഴിമതികേസുമായി ബന്ധപ്പെട്ട് മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടിയുടെ ഭാഗമായി ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ജോർ ബാഗ് വസതി ഒഴിയണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു കള്ളപ്പണ നിരോധന നിയമപ്രകാരം വസ്തുവകകൾ കണ്ട് കെട്ടുന്നതിന്റെ ഭാഗമായി വീട് ഒഴിപ്പിക്കാനുള്ള നോട്ടീസ് ഇന്നലെ അധികൃതർ കൈമാറി കഴിഞ്ഞ വർഷം ഒക്ടോബർ പത്തിനാണ് കാർത്തി ചിദംബരത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാവരജംഗമ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉത്തരവിറക്കിയത്

ഒരു റിപ്പോർട്ട്

ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ നടന്ന വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ വാർഷിക സമ്മേളനത്തിലാണ് തപാൽവകുപ്പ് ഈ തീരുമാനം കൈക്കൊണ്ടത്

ബാങ്കിങ് നിക്ഷേപം ഇൻഷുറൻസ് ബിൽ പേയ്മെന്റ് ടാക്സ് പേയ്മെന്റ് തുടങ്ങിയവ പോസ്റ്റ് ഓഫീസുകൾ മുഖേന അടയ്ക്കാവുന്ന തരത്തിലായിരിക്കും സേവനം ലഭ്യമാക്കുക തപാൽവകുപ്പിന്റെ പരിണാമ പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്താനായി പരിഷ്ക്കാര നടപടികളെക്കുറിച്ചുള്ള ചിന്തകൾ എല്ലാ തലത്തിലും ഉണ്ടാവണമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥരോട് ടെലികോം മന്ത്രി രവി ശങ്കർ പ്രസാദ് അഭ്യർത്ഥിച്ചു

ഈ നടപടികളിലൂടെ ഗവൺമെന്റ് ഖജനാവിന് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഏതെങ്കിലും അംഗം പേപ്പർ ആവശ്യപ്പെട്ടാൽ അവർക്ക് അത് ലഭ്യമാക്കുമെന്നും സ്പീക്കർ സഭാ അംഗങ്ങൾക്ക് ഉറപ്പ് നൽകി സഭയിൽ സംസാരിക്കുമ്പോൾ അവരുടെ പേരുകളും വകുപ്പു നമ്പരും സഭാ സ്ക്രീനിൽ എഴുതി വരുന്ന പുതിയ സംവിധാനം കൊണ്ടുവന്നതിൽ സ്പീക്കറെ അംഗങ്ങൾ പ്രശംസിച്ചു

ചില ഭേദഗതികൾ വരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അംഗീകാരത്തിനായി ബിൽ വീണ്ടും ലോക്സഭയിലേക്ക് അയയ്ക്കും

ഒരു കൊല്ലത്തിനുളളിൽ സമിതി പരസ്പര ചർച്ചയിലൂടെ തർക്കം പരിഹരിക്കേണ്ടതും ഇതു സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടതുമാണെന്ന് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു സമിതി മുഖാന്തിരം തർക്കം പരിഹരിക്കപ്പെടാതെ വന്നാൽ കേന്ദ്ര ഗവൺമെന്റ് വിഷയം അന്തർ സംസ്ഥാന നദീ ജല തർക്ക പരിഹാര ട്രൈബ്യൂണലിന് കൈമാറും കേന്ദ്ര ജലശക്തി മന്ത്രി ഗജേന്ദ്രസിങ് ഷെക്കാവത്താണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്

പൊതു ഇടങ്ങളിലെ താമസം ഒഴിപ്പിക്കുന്നതിന് ബില്ലിൽ വൃവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ വ്യവസ്ഥ പ്രകാരം പൊതുസ്ഥലങ്ങളിലെ കയ്യേറ്റം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ കേസ് നിലനിൽക്കുന്ന കാലയളവിൽ ഓരോ മാസവും അനധികൃത താമസക്കാരൻ നഷ്ടപരിഹാരം നൽകാൻ ബാദ്ധ്യസ്ഥനാണ് അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കൽ സുഗമമാക്കാൻ ഏറെ സഹായിക്കുന്നതാണ് ബില്ലെന്ന് ബിൽ സഭയിൽ അവതരിപ്പിച്ച് സംസാരിച്ച കേന്ദ്രഭവന നഗര കാര്യമന്ത്രി ഹർദ്ദീപ് സിങ് പുരി പറഞ്ഞു

എടപ്പാൾ സ്വദേശി മുഹമ്മദ് മുഹസീനാണ് അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്

ബില്ലിനെ ചൊല്ലി അരങ്ങേറുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഫെയ്സ്ബുക്കിലിട്ട പോസ്റ്റിലായിരുന്നു ശ്രീ ജയ്റ്റ്ലിയുടെ പ്രതികരണം സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവേചനങ്ങൾക്കെതിരെ പൊരുതുന്നവരാണ് സാധാരണ പുരോഗമനവാദികളെന്ന് അദ്ദേഹം പറഞ്ഞു മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന ബില്ല് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പാർലമെന്റ് പാസാക്കിയത്

മൂഖ്യമൃന്തി സർബാനന്ദ സോനോവാൾ ഇക്കാര്യം ധനകാര്യ ക്മ്മീഷ്ൻ അദ്ധ്യക്ഷൻ എൻ

സിങ് മുമ്പാകെ അവതരിപ്പിച്ചതായി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു

വിഷയം മുഖ്യമന്ത്രി സോനോവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രീ

ഇത് മൺസൂൺകാല മഴ ലഭ്യതയിലെ കുറവ് ഗണ്യമായി പരിഹരിച്ചതായി കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹാപത്ര പറഞ്ഞു വരുന്ന രണ്ടാഴ്ചയിലും കാര്യമായ മഴ രാജ്യത്ത് ലഭിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

എന്നാൽ ജാർഖണ്ഡ് ദക്ഷിണ മധ്യ കർണ്ണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശിലെ റായൽസീമ മേഖല ആൻഡമാൻ നിക്കോബാർ ഹിമാചൽപ്രദേശ് പശ്ചിമബംഗാളിലെ ഗംഗാതീരം എന്നിവിടങ്ങളിൽ സാധാരണയിലും കുറവ് മഴയാണ് കിട്ടിയത് ബിഹാർ അസം മഹാരാഷ്ട്രയിലെ തീർപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്ക്വും അനുഭവപ്പെട്ടു

ജാപ്പനീസ് താരം സയാഖ തെക്കാഹാഷിക്കെതിരെയാണ് സൈനയുടെ മൽസരം

എച്ച്

പ്രണോയ് പരുപ്പള്ളി കശ്യപ് സായ് പ്രണീത് എന്നിവരാണ് ഇന്നലെ അടുത്ത റൌണ്ടിലേക്ക് കടന്ന മറ്റ് ഇന്ത്യൻ താരങ്ങൾ

ഇക്ക്വിറ്റോറിയൽ ഗുനിയയുമായിട്ടായിരുന്നു മൽസരം നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ പുതുക്കിയ മൽസര പട്ടിക ട്ടിറ്ററ്റിലൂടെ ഐ ഐ എഫ് എഫ് പുറത്തിറക്കി